നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടം പൂതിയ സാങ്കേതിക മാറ്റങ്ങളിലേയ്ക്ക് രാജ്യത്തെ നയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ലോക് ഡൌൺ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനു മുഖ്യമ്ത്രിമാരുമായി നാളെ ചർച്ച നടത്തും

ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന കുടിയേറ്റ തൊഴിലാളികളെ തിരികെ എത്തിക്കാൻ സംസ്ഥാനങ്ങൾ നടപടി തുടങ്ങി

രാജൃത്തെ എല്ലാ പൌരന്മാരും ഒരേ ലക്ഷ്യത്തിനായി ദിശാ ബോധത്തോടുകൂടി മുന്നോട്ടു പോവുകയാ ണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻകി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡിനെതിരെ നിശ്ചയദാർഢ്യത്തോടെയുള്ള പോരാട്ടംപുതിയ സാങ്കേതിക മാറ്റങ്ങളിലേക്ക് രാജൃത്തെ നയിക്കുകയാണെന്നും സാങ്കേ തികവിദ്യയുടെ മേഖലയിൽ പുതിയ കണ്ടു പിടുത്തങ്ങൾ ഉണ്ടാവുകയാ ണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊറോണയ്ക്കെതിരെയുള്ള പോരാട്ട ത്തിൽ തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരുകളും നിർവ്വഹിക്കുന്ന ഉത്തരവാദിത്വങ്ങൾക്ക് വലിയ പങ്കുണ്ട്

രാജ്യത്തെ കൊറോണ മുക്തമാക്കാൻ ഡോക്ടർമാർ ആരോഗൃപ്രവർത്തകർ തൂട്ങ്ങിയവരെ അക്രമിക്കുന്നവർ ക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടി ഉര്യപ്പൂക്കുന്ന ഓർഡിൻസ് പുറപ്പെടു വിച്ച കാര്യവും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു കോവിഡ് മഹാമാരിയെ പ്രതിരോ്ധിക്കുന്നതിന് നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ക്മിരു്ത്യുകൾ കയറ്റി അയക്കുകയും ആ രാഷ്ട്രങ്ങൾ ഇന്ത്യയ്ക്കു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകമെങ്ങും ഇപ്പോൾ ഭാര്തത്തിന്റെ യോഗ ആയുർവേദം എന്നിവയെ പ്രധാന്യത്തോടെ വീക്ഷിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അമിതമായ ആത്മവിശ്വാസത്തിൽപെട്ടുപോകരുതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു മുഖാവരണം ധരിക്കുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുണ്ടെന്നും ഇത് ഭാവിയിൽ സംസ്കാരമുള്ള സമൂഹത്തിന്റെ പ്രതീകമായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങൾ സാമൂഹിക അകലം പാലിക്കുന്നതിലും ലോക്ഡൌണിന്റെ ഭാഗമായി വീടിനു പുറത്തിറങ്ങാതിരിക്കുന്ന കാരൃത്തിലും കൂടുതൽ ജാഗരൂകരാകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു കോവിഡ് ബാധ പൂർണ്ണമായും ഭേദമാകേണ്ടതുണ്ടെന്നും അതുകൊണ്ട് പ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നതിൽ പ്രാദേശിക തലത്തിൽ എവിടെയും ഒരു അശ്രദ്ധയും ഉണ്ടാകാൻ പാടില്ലെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു

ലോക്ഡൌണുമായി ബന്ധപ്പെട്ട് നിലവിലെ സ്ഥിതിഗതികളും മെയ് മൂന്ന് വരെ പ്രഖ്യാപി ച്ചിട്ടുള്ളി് ലോക്ഡൌൺ രണ്ടാം ഘട്ടത്തിനുശേഷം സ്വീകരിക്കേണ്ട നടപടികളും യോഗം ചർച്ച ചെയ്യും

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്ക യിലാണ്

ഇടുക്കിയിൽ ആറ് പേർക്കും കോട്ടയത്ത് അഞ്ച് പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ശാസ്താംകോട്ട കോട്ടയം ജില്ലയിലെ മണർക്കാട് എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ

ലോക് ഡൌൺ കാരണം കഴിഞ്ഞ ദിവസമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികൾക്ക് ആശ്വാസകരമായ നടപടിയാണിത് തങ്ങളുടെ സംസ്ഥാനത്തു നിന്നും മറ്റ് ഭാഗങ്ങളിൽ കൂടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്യുന്നവരെ തിരികെ എത്തിക്കുന്നതിനുള്ള നടപടികൾ ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ചു തൊഴിലാളികളെ ഘട്ടംഘട്ടമായി സംസ്ഥാനത്തേയ്ക്ക് തിരിക്കു കീത്തിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നൽകിി്യിരുന്നു മധ്യപ്രദേശിൽ നിന്നും മറ്റ് സ്ട്രൂസ്ഥാന്ങ്ങളിൽ കുടിയേറി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സ്യംസ്മാനത്തേയ്ക്ക് മടങ്ങി എത്താൻ തുടങ്ങിയിട്ടുണ്ട് കൂടാതെ മറ്റ് സ്റ്സ്ഥാനങ്ങളിൽ നിന്നും മധ്യപ്രദേശിൽ എത്തിയ തൊഴിലാളിക്ക്ളെ തിരിച്ചയക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മറ്റ് സ്ക്സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ തൊഴിലാളികളെ സംസ്ഥാനത്ത് എത്തിക്കാനും ഇതരസംസ്ഥാന തൊഴിലാളികളെ അവരവരുടെ നാടുകളിലേയ്ക്ക് തിരിച്ച് അയക്കാനുമുള്ള നടപടികൾ രാജസ്ഥാൻ സർക്കാരും ആരംഭിച്ചു

തങ്ങളുടെ സംസ്ഥാനത്തേയ്ക്ക് മടങ്ങി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്പ് ലൈൻ നമ്പരിലൂടെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് മടങ്ങി പോകുന്നവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുക ഗതാഗത സൌകരൃങ്ങൾ ഒരുക്കി കൊടുക്കുന്നതോടൊപ്പം സംസ്ഥാന അതിർത്തികളിൽ താൽക്കാലിക താമസത്തിനും ഭക്ഷണത്തിനുമുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്

സമ്പൂർണ ലോക് ഡൌൺ രാജ്യത്ത് പ്രഖ്യാപിച്ചതാണ് രോഗ വ്യാപനത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതെന്ന് സർക്കാർ വ്യക്തമാക്കി

എങ്കിലും അത്യാവശ്യ സ്വഭാവമുള്ള കേസുകൾ കുറഞ്ഞ ജീവനക്കാരുടെ സഹായത്തോടെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൈകാര്യം ചെയ്യൂന്ന സംവിധാനത്തിലേയ്ക്ക് കോടതി മാറുകയായിരുന്നു

കേന്ദ്രത്തിന് ഇത്തരത്തിൽ ഒരു പദ്ധതിയോ ഇത് സംബന്ധിച്ച ചർച്ചകളോ നടന്നിട്ടില്ലെന്നും പി ഐ ബി

ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി

ഇവ നിലവിൽ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്ന് കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത ഉന്നതതലയോഗം വിലയിരുത്തി

കോവിഡ് വൈറസിനെ തടയുന്നതിനെ സഹായിക്കുന്ന പ്രതിരോധ മരുന്നുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഇതുവരെ സ്ഥിരീകരണമൊന്നും ലഭ്യമല്ലെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു നിലവിൽ ലബോറട്ടറികളിലെ റാപ്പിട്ട് ടെസ്റ്റ് പോലെയുള്ള പരിശോധനക ളിലൂടെ മാത്രമേ ആളുകളിലെ കോവിഡ് വൈറസ് വ്യാപനത്തെക്കുറിച്ച് വൃക്തമായ ധാരണയിലെത്താൻ കഴിയുന്നുള്ളുവെന്നും സംഘടന വ്യക്തമാക്കി